അടിസ്ഥാനരഹിതമെന്നും കെട്ടിച്ചമച്ചതെന്നും കേന്ദ്ര വിദേശകാര്യസഹമന്ത്രി എം

അക്ബർ

ഉറപ്പുവരുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

ഹൈദ്രാബാദ് ടെസ്റ്റിൽ പിൻഡീസിനെതിരെ റ്

അക്ബർ ആരോപ്ണ്ട്ങൾ കെട്ടിച്ചമച്ചതാണെന്നും യാതൊരു തെളിവുകളുമില്ലാ്ട്ടത ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വഭാവമുള്ളതായി മാറിയിരിക്കുകയാണെ്സ്കും അദ്ദേഹം പറഞ്ഞു

പൊതു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പിന്നിലെ ഗൂഡാലോചന പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് വിദേശ സന്ദർശനം പൂർത്തിയാക്കി ശ്രീ

ഇദ്ദേഹത്തിനെതിരെ നിരവധി വനിതാ പത്രപ്രവർത്തകരാണ് ലൈംഗികാരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷകക്ഷികൾ ഇതിനകം ശ്രീ അക്ബറിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഇത് ആദ്യമായാണ് ഒരു മുതിർന്ന കേന്ദ്രമന്ത്രി അതിർത്തി മേഖലയിൽ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് വക്താവ് അറിയിച്ചു അടിസ്ഥാന സൌകരൃ വികസനത്തിലുണ്ടായ പുരോഗതി അദ്ദേഹം വിലയിരുത്തും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

എല്ലാ വോട്ടിംഗ് മെഷീനുകളും പിഴവുകളില്ലാത്ത വിധം സുരക്ഷിതവും കേടുവരുത്താൻ സാധിക്കാത്തതുമാണെന്ന് വൃക്തമാക്കി

ദൽഖാൻ സെക്ടറിൽ ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സേന വെടി ഉതിർത്തത് ഇന്ത്യൻസേന ശക്തമായി തിരിച്ചടിച്ചു വെടിവെയ്പ് അരമണിക്കൂറോളം തുടർന്നു ആർക്കും പരിക്കില്ല

ഭവാൻ ഭെയ്റോൺ ഘട്ടിയ്ക്കും ഇടയിലുള്ള നിർദ്ദിഷ്ട റോപ്വേ ഉപയോഗപ്പെടുത്തുന്ന തീർത്ഥാടകർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക ഇൻഷറൻസ് പരിരക്ഷ നൽകാനും യോഗം തീരുമാനമെടുത്തു

പരീക്കർ പനാജിയിലെ വസതിയിൽ എത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു പാൻക്രിയാസ് ഗ്രന്ഥി സംബന്ധിയായ അസുഖത്തെത്തുടർന്ന് ഈ വർഷം ഫെബ്രുവരി മുതൽ ശ്രീ പരീക്കർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു

സ്ഥിതിഗതികൾ ഇന്നലെ രാത്രിതന്നെ മുഖ്യമന്ത്രി വിലയിരുത്തുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു

മൂന്ന് മന്ത്രിമാർ അടങ്ങുന്ന സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് ദൂരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി

ഭക്ഷ്യ കാർഷിക് സംഘടനയുടെ ഈ വർഷത്തെ ഫ്യൂച്ചർ പോളിസി ഗോൾഡ് അവാർഡ് സിക്കിന് സിക്കിം മുഖ്യമന്ത്രി പവൻ ചാമ്ലിങ് നാളെ റോമിൽ അവാർഡ് സ്വീകരിക്കും കൂടുതൽ വിവരങ്ങളുമായി അരുൺ കെ

സുസ്ഥിര പോഷണ പദ്ധതിയിലും ആഗ്രോ എക്കോളജിയിലും സിക്കിം കൈക്കൊണ്ട നടപടികൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് യു എൻ

നൂറ് ശതമാനം ജൈവ കൃഷി എന്നത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് സിക്കിം തെളിയിച്ചതായി ഭക്ഷ്യ കാർഷിക സംഘടന ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മരിയ ഹെലേന സിമിനോ പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃതൃങ്ങൾ തടയുന്ന പദ്ധതി ആണവായുധ നിരായുധീകരണം മുതലായവയ്ക്കാണ് മുൻ വർഷത്തിൽ ഈ അവാർഡ് നൽകിയിരുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചൊവ്വാഴ്ച ബോർഡ് ആസ്ഥാനത്ത് ചേരുന്ന് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അദ്ധ്യക്ഷത വഹിക്കും

എ

അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിലായിരിക്കും മുഖ്യമന്ത്രിയുടെ സന്ദർശനം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

വിശദാംശങ്ങളുമായി അരുൺ കെ എസ്

രണ്ട് ഇന്നിംഗ്സിലും കൂടിയായി ഉമേഷ് യാദവ് പത്ത് വിക്കറ്റ് വീഴ്ത്തി

രണ്ട് ദിവസത്തിലധികം ബാക്കി നിൽക്കെയാണ് ചെറിയ വിജയലക്ഷ്യമുയർത്തി വിൻഡീസ് കീഴടങ്ങിയത് രണ്ടാം ഇന്നിംഗിസിൽ ഉമേഷ് യാദവ് നാല് വിക്കറ്റ് വീഴ്ത്തി രവീന്ദ്ര ജഡേജ മൂന്നും അശ്വിൻ രണ്ടും കുൽദീപ് യാദവ് ഒരു വിക്കറ്റും നേടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൂന്ന് ഏകദിനങ്ങളുള്ള പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളും മുംബൈയിലാകും നടക്കുക

ഫൈനലിൽ ക്രെയോഷ്യയുടെ ബോർണാ കോറിക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് നൊവാക് പരാജയപ്പെടുത്തിയത്

രക്ഷാസംഘം ഇന്ന് രാവിലെ വ്യോമമാർഗ്ഗം ഇവരുടെ മൃതദേഹം ബെയ്സ് ക്യാമ്പിൽ നിന്നും പുറത്തെത്തിച്ചു കൊറിയൻ വംശജരായ അഞ്ച് പർവ്വതാരോഹകരും നാല് നേപ്പാളി സ്വദേശികളായ ഗെയിഡുകളുടെയും മൃതദേഹമാണ് കണ്ടെടുത്തത്